ഇന്തൃയും ബൊളീവിയയും എട്ട് കരാറുകളിൽ ഒപ്പുവച്ചു

വിവിധ പാർട്ടി നേതാക്കൾ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിഖിത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർുണാചൽ പ്രദേശ് അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെട്ടുപ്പ് റാലികളിൽ പങ്കെടുക്കും

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഏപ്രിൽ ആദ്യ വാരം അസമിൽ പ്രചാരണത്തിനെത്തും

ജെ

അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട് രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നലെ ഇന്നലെ ആയിരുന്നു

ഏഴ് ഘട്ടങ്ങളിലായാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

കണ്ണൂരിൽ എൽ

എഫ് സ്ഥാനാർത്ഥി പി

ശ്രീമതി നാമനിർദ്ദേശപത്രിക സമർപ്പിച്ചു കാസർകോട് മണ്ഡലത്തിലെ എൽ

എഫ് സ്ഥാനാർത്ഥി എം

രാഘവനൂം യു ഡി

എറണാകുളത്തെ എൽ

സ്ഥാനാർത്ഥി പി രാജീവ് പത്രിക സമർപ്പിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ എൽ

എഫ് സ്ഥാനാർത്ഥികളായ സീ്ദിവാകരനും എ

തിരുവനന്തപുരത്തെ യു

എഫ് സ്ഥാനാർത്ഥി ശശിതരൂരും ആറ്റിങ്ങലിലെ അടൂർ പ്രകാശും മറ്റന്നാൾ പത്രിക സമർപ്പിക്കും ഏപ്രിൽ നാല് വരെയാണ് പത്രിക സമർപ്പിക്കാനാവുക

പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പെരുമാറ്റചട്ട ലംഘനമല്ലെന്നാണ് ഇക്കാരൃം പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക സമിതി കണ്ടെത്തുകയായിരുന്നു

ആഗോള ബഹിരാകാശരംഗത്ത് ഇന്ത്യ ഒരു സുപ്രധാന ശക്തിയായി മാറിയതായും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചിരുന്നു

ആർ ഒ യുടെ വാണിജ്യ സ്ഥാപനമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ തലവൻ രാകേഷ് ശശിഭൂഷൺ പറഞ്ഞു

ബഹിരാകാശ രംഗത്തെ ഈ വളർച്ച ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു നല്കുമെന്നും അദ്ദേഹം പറഞ്ഞു

മൂന്നംഗ ഇന്ത്യൻ സംഘം കോടതിയിൽ ഹാജരായി നീരവ് മോഡിക്കെതിരായ തെളിവുകൾ സമർപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത സംസ്കാരം ഖനനം ബഹിരാകാശം നയന്ത്രവിദഗ്ധർക്കുള്ള വീസ പരമ്പരാഗത ചികിത്സ തുടങ്ങിയ മേഖലകളിലുള്ള സഹകരണം സംബന്ധിച്ച കരാറുകളിലാണ് ഇന്ത്യയും ബൊളീവിയയും ഒപ്പുവച്ചത് സന്ദർശന വേളയിൽ രാഷ്ട്രപതിക്ക് ബൊളീവിയ പരമോന്നത ബഹുമതി സമ്മാനിച്ചു സാന്താക്രൂസിൽ നടന്ന ചടങ്ങിൽ ബൊളീവിയൻ പ്രസിഡ്യന്റ് ഇവോ മൊറാൽസാണ് ബഹുമതി സമ്മാനിച്ചത്

ഉഭയകക്ഷി ബന്ധം പ്രാദേശികവും ബഹുമുഷ്പ്പുമായ വിവിധ മേഖലകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നടന്നത്

ഐക്യരാഷ്ട്രസഭ സുരക്ഷ കൌൺസിലിന്റെ നവീകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി ക്രൊയേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി ബൊളീവിയയിൽ എത്തിയത് ബൊളീവിയൻ സന്ദർശനത്തിന് ശേഷം ശ്രീ രാംനാഥ് കോവിന്ദ് ചിലിയിലേക്ക് പോകും ന്യൂസ്ഡെസ്ക് ആകാശവാണി

ജമ്മു കശ്മീർ പോലീസ് ഐ ബി സി ബി ഐ ദേശീയ അന്വേഷണ ഏജൻസി ആദായ നികുതി വകുപ്പ് എന്നിവയിൽ നിന്നുള്ള അംഗങ്ങളാണ് സംഘത്തിലുള്ളത് ജമ്മുകശ്മീർ പോലീസിലെ എ

തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സംഘം ഓരോ ആഴ്ചയും യോഗം ചേർന്ന് റിപ്പോർട്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ തയ്യാറാക്കും

തീപ്പിവ്ദ ശൃഖലകളെപ്പറ്റിയും അവരുടെ പ്രവർത്തനങ്ങളും ഇപ്പൂർ നിരീക്ഷിക്കും

ഇരുരാജ്യത്തെയും പ്രമുഖ നയതന്ത്രജ്ഞർ ഉൾപ്പെട്ട ഭീകരവിരുദ്ധ നീക്കം ശക്തമാക്കണമെന്ന് യോഗമാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത്

രാഷ്ട്രീയ താൽപര്യത്തോടെ ഒരു മന്ത്രിയുടെയോ എം

യുടെയോ വീടുകളിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിട്ടില്ല കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും ഇപ്പോഴത്തെ നീക്കം സംശയം ഉളവാക്കുന്നതാണ്

എഞ്ചിനയർമാരുടെയും കോൺട്രാക്ടർമാരുടെയും വീടുകളിലാണ് ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ചരക്കു സേവന നികുതിയിൽ വരുത്തിയ മാറ്റങ്ങൾ നാളെ അർദ്ധരാത്രിമുതൽ നിലവിൽ വരും

റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ജി

ടി യിൽ വരുത്തിയ ഇളവുകളും നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും

സിന്ധു കെ ശ്രീകാന്ത് പി

ലോക ആറാം നുമ്പർ താരമായ സിന്ധു ചൈനീസ് താരം ഹി ബിൻജിയാവോട്ടെ്യു ഇന്ന് സെമിയിൽ നേരിടും